ഉള്ളൂവെന്നും അത് പോലീസ് എന്നത് മാത്രമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ

മറ്റന്നാൾ ശബരിമല നട തൂറിക്കൂന്നതിന് മൂന്നോടിയായി പത്തനംതിട്ടയിൽ കനത്ത് സുര്ക്ഷ

വിരിവയ്ക്കാൻ സ്റ്റ്കരൃം ഒരുക്കുമെന്ന് ദേവസാം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ

സംസ്ഥാന വ്യാപകമായി കോർപ്പറേഷൻ മുൻസിപ്പാലിറ്റി ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന

വരുത്തിയതോടെ ഉടലെടുത്ത ശമ്പള വിതരണത്തിലെ തടസം ഇന്നത്തോടെ നീങ്ങുമെന്ന് മന്ത്രി തോമസ് ഐസക്

മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിൽ പോലീസിന് വലിയ ഉത്തരവാദിത്തമാണുള്ളത് പോലീസിൽ ഒരു ജാതിയും ഒരു മതവും മാത്രമേയുള്ളൂ അത് പോലീസ് എന്നത് മാത്രമാണെന്നും ശ്രീ

പോലീസിന്റെ പ്രവർത്തനത്തിലൂടെയാണ് ജനങ്ങൾ ഗവൺമെന്റിനെ വിലയിരുത്തുന്നത് കണ്ണൂർ മങ്ങാട്ടുപറമ്പ് കെ

പി നാലാം ബറ്റാലിയനിൽ പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

മന്ത്രിമാരായ ഇ

ജയരാജൻ രാമചന്ദ്രൻ ക്ടിന്നപ്പള്ളി പി

ശ്രീമതി എം പി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാപ്രതിനിധി ബിജി വർഗ്ഗീസ്

ശബരിമലയിൽ സമാധാനം ഉറപ്പാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കാലാവധി പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ദേവസ്വംബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് രാജി വയ്ക്കു എന്നും അദ്ദേഹം പറഞ്ഞു

രാജു വനം വകുപ്പിന് ദേവ്സ്ത്യം ബോർഡിനോട് ശത്രുതയില്ലെന്ന് മന്ത്രി കെ

ശബരിമലയെ സൌഹാർദ്ദപൂർണ്ണമായി തന്നെ നിലനിർത്താനാണ് ഗവൺമെന്റിന് താൽപര്യം മാസ്റ്റർ പ്താൻ അനുസരിച്ച് മാത്രമേ ശബരിമലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുകയുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു

കെ വേണുഗോപാൽ ശബരിമല യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസുകളിൽ നിന്ന് അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ പിൻമാറിയെന്ന് റിപ്പോർട്ട് കേസുകളിൽ തീരുമാനമെടുക്കാൻ അഡീഷണൽ സോളിസിറ്റർ ജനറലിനെ ചുമതലപ്പെടുത്തി

തിരിച്ചറിയൽ കാർഡ് കൈവശമില്ലാത്തവരെ ജോലിയിൽ തുടരുവാൻ സുരക്ഷാ കാരണങ്ങളാൽ അനുവദിക്കുന്നതല്ല

കെട്ടിട പെർമിറ്റുകൾ ഉൾപ്പെടെയുള്ള ഫയലുകളിൽ അനാവശ്യ കാലതാമസം വരുത്തുന്നുവെന്ന വ്യാപക പരാതിയെ തുടർന്നാണ് പരിശോധന

മഴ ലഭിച്ചതോടെ നെയ്യാർഡാമിന്റെ നാല് ഷട്ടറുകൾ ഉയർത്തി

പേപ്പാറ ഡാമിന്റെ ഒരു ഷട്ടറും ഉയർത്തിയിട്ടുണ്ട്

വാളയാർകോരയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്

രഥോത്സവത്തിന് ശേഷം മുന്നോടിയായുള്ള കല്പാത്തിയിലെ ശുചീകരണ പ്രവർത്തികൾ ആരംഭിച്ചു